കണ്ണൂർ മണ്ഡലത്തിലെ ധർമ്മടത്തും പാമ്പുരുത്തിയിലും കളളവോട്ട് നടന്നതായി സ്ഥിരീക്ടർണ്ടം കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫ്യീസറ്റുടെ നിർദ്ദേശം

പോലീസ്പോസ്റ്റൽ പ്പോട്ടുകൾ മുഴുവൻ റദ്ദാക്കണമെന്നാവൃശ്യപ്പെട്ട് പ്രതിപക്ഷനേതാവ് ഹൈക്കോടതിയെ സ്രമീപിക്കുന്നു

ആലുവ ചൂർണിക്കരയിൽ വ്യാജരേഖ ചമച്ച് നിലം നികത്തിയ കേസിൽ ഇടനിലക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു

ഒരാഴ്ചത്തെ അന്താരാഷ്ട്ര ബാലചലച്ചിത്ര മേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയർന്നു

എൽ രണ്ടാം യോഗ്യത മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

പാമ്പുരുത്തിയിൽ പന്ത്രണ്ടും ധർമ്മടത്ത് ഒന്നും കള്ളവോട്ടാണ് നടന്നത്

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു

പോസ്റ്റൽ വോട്ടുകൾ മുഴുവൻ റദ്ദാക്കുക സംസ്ഥാന ഇലക്ടറൽ ഓഫീസറുടെ മേൽനോട്ടത്തിൽ്ടു തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പ്രി പൊലീസുകാർക്കും ഫെസിലിറ്റേഷൻ സെന്റർ വഴി വോട്ട് ചെയ്യുന്നതിന് സംവിധാനം ഒരുക്കുക ് എന്നീ ആവശൃങ്ങളുന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവ് കോടതിയെ സമീപിക്കുക

ആലുവ സ്വദേശിയാണ് ഇയാൾ വ്യാജരേഖ ചമയ്ക്കാൻ ഏഴുലക്ഷം രൂപ നൽകിയതായി

അബുവിനെ ആലുവ പോലീസ് ചോദ്യം ചെയ്യുകയാണ്

കുറ്റപത്രത്തിന്റെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് പ്രതിക്ക് നൽകി

വിചാരണയ്ക്ക് ഹാജരാകാൻ സമൻസ് ലഭിച്ചതിനെ തുടർന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധറിൽ നിന്ന് പാലായിൽ എത്തി കോടതിയിൽ ഹാജരാവുകയായിരുന്നു

തൃശ്ശൂർ ഫോറസ്റ്റ് ആന്റ് വെറ്ററിനറി കോളേജിന്റെയും വിവിധ എൻ

കൂടുതൽ വിവരങ്ങളുമായി ആ്കാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ്

ഏഴുവയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിൽ അമ്മയ്ക്കെതിരെ കേസ് എടുക്കണമെന്ന് ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് മാനസിക സമ്മർദ്ദത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവതിയെ ഇന്ന് അറസ്റ്റ് ചെയ്തു

കെ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലീസ് അസോസിയേഷനെ മുൻനിർത്തി സിപിഐ എം ശ്രമങ്ങളെക്കുറിച്ച് നടത്തുന്ന സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കൊല്ലത്തെ യുഡിഎഫ് സ്ഥാനാർഥി എൻ കെ പ്രേമചന്ദ്രൻ എം

ജില്ലാ കളക്ടർ അദ്ധ്യക്ഷയായ നാട്ടാന നിരീക്ഷക കമ്മിറ്റി വൈകിട്ട് ഏഴിനാണ് യോഗം ചേരുന്നത് ഇതോടെ ഇക്കാര്യത്തിൽ വൃക്തത കൈവരും അരമണിക്കൂർ നീളുന്ന ചടങ്ങായ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നടതുറന്ന് പൂര വിളമ്പരം ചെയ്യുന്ന ആ ചടങ്ങിന് മാത്രമായി ആനയെ എഴുന്നളളിക്കണ്ണ്മെന്ന ആവശ്യമാണ് ആനയുടമകൾ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും കളക്ടർ അദ്ധ്യക്ഷയായ സമിതി ഇക്കാര്യത്തിൽ തീരുമാന്റു എടുക്കണമെന്നുമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് നെതർലാൻഡ്സ് നെതർലൻഡ്സ് സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ മന്ത്രാലയങ്ങളുടെയും ഡച്ച് കമ്പനികളുടെയും പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി

മണി കാലവർഷം മുൻനിർത്തി അണക്കെട്ടുകളുടെ സുരക്ഷയ്ക്കായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് മന്ത്രി എം എം മണ്ണി ഇക്കാരൃങ്ങളിലെ നടപടിക്രമങ്ങൾ കെഎസ്ഇബി പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ടാം യോഗ്യതാ മൽസരത്തിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് ഡൽഹി കൃാപിറ്റൽസിനെ നേരിടും ന് വിശാഖപട്ടണത്താണ് മൽസരം ഒന്നാം യോഗൃതാ മൽസരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർകിംഗ്സിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട്

ഇന്ത്യൻ നേവി എഫ്

ഞായറാഴ്ച കോഴിക്കോട്ട് നടക്കുന്ന രണ്ടാം സെമിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള റിസർവ്വ് ടീമിനെ നേരിടും

മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മീൻപിടുത്ത ബോട്ടുകൾ കെട്ടി സൂക്ഷിക്കണമെന്നും കടൽതീരത്തെത്തുന്നവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു